ശബരിമല ക്ഷേത്രത്തിന്റെ സ്വീകാര്യത തകർക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വി്ജയൻ

ഡെൻമാർക്ക് ഓപ്പൺ ബാന്റ്മിന്റണിൽ ഇന്ത്യയുടെ സൈന നെഹ്വാൾ ക്വാർട്ടറിൽ പ്രവേശിച്ചു

ഉത്തർ പ്രദേശിൽ മൂന്ന് പ്രാവശ്യവും ഉത്തരാണ്ഡിൽ ഒരു പ്രാവശ്യവും ശ്രീ

കേന്ദ്രമന്ത്രി സഭയിൽ വിദേശകാരൃം ധനകാരൃം പെട്രോളിയം വൃവസായം വാണിജ്യം എന്നീ വകുപ്പുകൾ കൈ കാര്യം ചെയ്തിരുന്നു ആന്ധ്രാ പ്രദേശിൽ ഗവർണറായും സേവന മനുഷ്ഠിച്ചിരുന്നു

തിവാരിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഉത്തർപ്രദേശ് ഉത്തരാ ഖണ്ഡ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വികസന ത്തിനും പൊതുജനക്ഷേമത്തിനും വലിയ സംഭാവനയാണ് തിവാരി നൽകിയിട്ടുള്ളതെന്ന് ശ്രീ കോവിന്ദ് ടിറ്ററിൽ കുറിച്ചു ഉത്തർപ്രദേശി ന്റെയും ഉത്തരാഖണ്ഡിന്റെയും വൃാവസായ വളർച്ച യ്ക്കും പുരോഗ തിക്കും തിവാരി നൽകിയ സേവനങ്ങൾ പ്ര എന്നും ഓർമ്മിക്കപ്പെടു മെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

തിവാരിയുടെ മരണത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് അനുശോചനം അറിയിച്ചു

ചർച്ചയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കേണ്ടത് പാകിസ്ഥാ നാണ് ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരുമായി സംസാരിക്കവെ വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം നിലവിൽ ചർച്ചയ്ക്കായുള്ള നിർദ്ദേശങ്ങളൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാനുമേലുള്ള അമേരിക്കയുടെ രണ്ടാംവട്ട ഉപരോധത്തെക്കുറിച്ചുള്ള ചോദൃത്തിന് ഇക്കാരൃത്തിൽ ഇറാനുമായും അമേരിക്കയുമായും ഇന്തൃ ചർച്ചകൾ നടത്തിവരുന്നുണ്ടെന്നും ഇന്തൃയുടെ ഉൌർജ്ജ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ബാധൃത ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ എച്ച് വൺ ബി വിസ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമ യു

അമേരിക്കയുടെ സമ്പദ് വൃവസ്ഥയിൽ ഇന്ത്യൻ വംശജർ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും രവീഷ് കുമാർ പറഞ്ഞു

ആരോപണത്തെ തുടർന്ന് വിദേശകാരൃ സഹമന്ത്രി സ്ഥാനം അക്ബർ ഇന്നലെ രാജിവച്ചിരുന്നു തനിക്കെതിരെയുളള ആരോപണങ്ങൾ വ്യാജമാണെന്നും വൃക്തിപരമായാണ് നിയമ പോരാട്ടം നടത്തുന്നതെന്നും അക്ബർ പ്രസ്താവിച്ചു രാഷ്ട്രത്തെ സേവിക്കാൻ തനിക്ക് അവസരം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനോടും തനിക്ക് കൃതജ്ഞതയുണ്ടെന്ന് അക്ബർ കൂട്ടിച്ചേർത്തു

ഇത്തരം മാധ്യമ റിപ്പോർട്ടുകൾ ിജ്നങ്ങൾക്കിടയിൽ അനാവശ്യ ഭയം ഉണ്ടാക്കുന്നവയാണ്

അധാർ ് കേസിലെ സ്ക്ര്യീാകോടതി വിധി അനുസരിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷ്ട്രിയിലൂടെ പുതിയ സിം കാർഡുകൾ നൽകാ നുള്ള നടപടി ക്രമങ്ങൾ പ്പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി

രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ഓഫീസുകളിൽ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് വനിതാ ശിശുവികസന മന്ത്രി മനേകാ ഗാന്ധി ടിറ്ററിൽ കുറിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകളുട്ടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഗവൺമെന്റിന് പ്രത്യേക അധികാരം ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു

ശാസ്ത്രി നഗർ വിദ്യാധർ നഗർ സിന്ധി ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലും വൈസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ആരോഗൃ വിഭാഗം അറിയിച്ചു

ചീഫ് സെക്രട്ടറി ഡി

ഗുപ്ത മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു

നേതാവ് മോഹൻ ഭഗവത് നാഗ്പൂരിൽ നടന്ന വിജയദശമി ആഘോഷ ചടങ്ങിനിടെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ക്ഷേത്ര നിർമ്മാണം ആത്മാഭിമാനത്തിന്റെ കാര്യമാണെന്നും ഇത് ജനഹിതത്തിനും ഐക്യത്തിന്റേയും അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും ശ്രീ

സ്വാശ്രയാധിഷ്ഠിതമായ പ്രതിരോധ സംവിധാനമാണ് ഭാരതത്തിന് ആവശ്യമെന്നും മോഹൻ ഭഗവത് പറഞ്ഞു

ആചാരങ്ങളെയും അത് അംഗീകരിക്കുന്ന സമൂഹത്തേയും പരിഗണിക്കാതെയാണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ്വിധി സുപ്രീം കോട്ടതി പുറപ്പെടുവിച്ചതെന്ന് ആർ

നേതാവ് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ ്ട് വോയിസ് ശബരിമലയുടെ സ്വീകാരൃത തകർക്കാൻ ശ്രമം നടക്കുന്നതായും വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ശബരിമലയെ കലാപഭൂമിയാക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി ഫെയ്സ് ബുക്കിൽ കുറിച്ചു സന്നിധാനത്തിൽ പരിസരങ്ങളിലും നിലവിലുള്ള നിരോധനാജ്ഞ അക്രമകാരികളെ ഉദ്ദേശിച്ചാണെന്നും ഭക്തരെ ഉദ്ദേശിച്ചല്ലെന്നും ദേവസ്വംമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വൃക്തമാക്കി

ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന സംഭവങ്ങൾ സംബന്ധിച്ച് ജൂഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബി ജെ പി അനിഷ്ട സംഭവങ്ങൾക്ക് കാരണക്കാർ സംസ്ഥാന ഗവൺമെന്റും പോലീസുമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് ആരോപിച്ചു സംസ്ഥാന ഗവൺമെന്റ് ആവശ്യ പ്പെട്ടാൽ മാത്രമെ കേന്ദ്രത്തിന് ഇക്കാരൃത്തിൽ നിയമനിർമാണം നടത്താനാകൂവെന്നും ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമലയിൽ സംഘർഷം തുടരുന്ന പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി വിദേശയാത്ര വെട്ടിച്ചുരുക്കി കേരളത്തിൽ തിരിച്ചെത്തണമെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശൃപ്പെട്ടു ശബരിമലയെ കലാപഭൂമിയാക്കരുതെന്ന് തന്ത്രി കണ്ഠരര് രാജീവരര് പറഞ്ഞു സ്ത്രീകൾ കയറിയാൽ ശബരിമല നട അടച്ചിടുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും തന്ത്രി വ്യക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്ത് ദുരന്തം ബാധിച്ച സമയങ്ങളിൽ എൻ ഡി എം എ അതിനെ കൈകാരൃം ചെയ്ത രീതി പ്രധാനമന്ത്രി അവലോകനം ചെയ്തു കൂടാതെ എൻ ഡി എം എ

ദുരന്തങ്ങളിൽ ജീവനും സ്വത്തുക്കളും സംരക്ഷിക്കാൻ ഫലപ്രദമായി ഇടപെടുന്നതിന് വിവിധ വകുപ്പുകൾ തമ്മിൽ മെച്ചപ്പെട്ട ഏകോപനം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്ത നിയന്ത്രണ രംഗങ്ങളിൽ ആഗോള വിദഗ്ധരുടെ സേപ്രനം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഡി എം

ഉദ്ദേട്ടാഗസ്ഥ പ്രതിനിധികളും ആഭ്യന്തരമന്ത്രി രാജ് നാഥ് സിംഗ്ക് ധനകാര്യ മന്ത്രി അരുൺ ജെയ്റ്റ്ലി കൃഷി മന്ത്രി രാധ്യക്ക് മോഹൻ സിംഗ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

ഇന്ന് നടന്ന പ്രീ കാർട്ടറിൽ ജപ്പാന്റെ ലോക രണ്ടാം നമ്പർ താരം അകാനെ യമഗുച്ചി യെയാണ് സൈന തോൽപിച്ചത് നാളെ നടക്കുന്ന കാർട്ടറിൽ ജപ്പാന്റെ നൊജോമി ഒക്കുഹാര യാണ് സൈനയുടെ എതിരാളി പുരുഷ വിഭാഗം സിംഗിൾസ് മത്സരങ്ങൾക്കായി കെ ശ്രീകാന്തും സമീർ വെർമ്മയും ഇന്ന് ഇറങ്ങും

ആതിഥേയരായ ഒമാനെ നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ ഇന്ന് നേരിടും

പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയ്ക്കും ഒമാനും പുറമെ പാക്കിസ്ഥാൻ മലേഷ്യ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ ടീമുകളും മത്സരിക്കുന്നുണ്ട്

എൻ

ഇതുവരെയുള്ള ഫലം അനുസരിച്ച് ഇരു പാർട്ടികളും ഒമ്പത് സീറ്റുകൾ വീതം നേടിയിട്ടുണ്ട് രാജ്യത്തെ മൂന്നാമത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വളരെ താൽപ്പര്യത്തോടെയാണ് ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തത്

വോട്ടർമാരിൽ സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ

ചുഴലിക്കാറ്റ് മൂലമുള്ള വെള്ളപ്പൊക്ക ദുരന്തത്തെ തുടർന്നുള്ള കേന്ദ്ര സഹായം പ്രത്യേക രക്ഷാ ദൌത്യ കമ്മീഷണർ ബി